പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭാ സ്പീക്കർ സുമിത്രാ മഹാജന്റെ അധ്യക്ഷതയിൽ സർവ്വക്ഷി യോഗം നടന്നു സമ്മേളനം നാളെ ആരംഭിക്കും

പശ്ചാത്തലത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാർഖണ്ഡ് സന്ദർശിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി

ധനമന്ത്രി അവതരിപ്പിക്കും

ഹാമിൽട്ടണിലെ ത്സ്ഡ്ൻ പാർക്കിൽ നടക്കും

കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

അന്താരാഷ്ട്ര റിപ്പോർട്ടുകളനുസരിച്ച് അടുത്ത പത്ത് പതി നഞ്ച് വർഷങ്ങൾക്കുളളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പത്ത് നഗരങ്ങൾ ഇന്ത്യ യിൽ നിന്നുളളതാകുമെന്നും അതിൽ സൂറത്താകും പട്ടികയിൽ ഒന്നാം സ്ഥാന ത്തെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

അഹമ്മദാബാദിനും വഡോദരയ്ക്കും ശേഷം ഗുജറാത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നാണ് സൂറത്ത് വിമാനത്താവളം തെക്കൻ ഗുജറാത്ത് തീരത്ത് ദണ്ഡി ഗ്രാമത്തിലെ ഉപ്പുസത്യാഗ്രഹ ദേശീയ സ്മാരകം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു

ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യരക്ഷാ സംരംഭമാണ് ആയ്ട്ഷ്മാൻ് ഭാരത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ശിശു മാതൃ മരണൃക്ടിരക്ക് കുറയ്ക്കുന്നതിനുളള വാക്സിനേഷൻ ബോധവത്കരണ പദ്ധതിയായ മിഷൻ ഇന്ദ്രധനുസ്സിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപി താവിന് ആദരാഞ്ജലി അർപ്പിച്ചു മഹാത്മാഗാന്ധിയെയും രാജ്യത്തിന്റെ സ്വാതന്ത്യത്തിനായി ജീവത്യാഗം ചെയ്ത ധീരസേനാനികളെയും രാഷ്ട്രം കൃതഞ്ജതയോടെയാണ് സ്മരിക്കുന്നതെന്ന് ശ്രീ രാംനാഥ് കോവിന്ദ് ട്വീറ്റ് ചെയ്തു ന്യൂഡൽഹിയിൽ മഹാത്മാഗാന്ധി അന്ത്യ വിശ്രമംകൊള്ളുന്ന രാജ്ഘട്ടി ലായിരുന്നു പ്രധാന അനുസ്മരണ ചടങ്ങുകൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ കര വ്യോമ നാവിക സേനാ മേധാവികൾ തുടങ്ങിയവർ രാജ്ഘട്ടിൽ പുഷ്പചക്രം അർപ്പിച്ചു സർവ്വമത പ്രാർത്ഥ നയിലും നേതാക്കൾ പങ്കെടുത്തു രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത എല്ലാപേരെയും അനുസ്മരിച്ച് രാജ്യമെമ്പാടും രാവിലെ രണ്ട് മിനിറ്റ് മൌനപ്രാർത്ഥന നടത്തി ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി സാമ്രാജ്യത്തിനെതിരെ വെല്ലുവിളി നടത്തിയ ഗുജറാത്തിലെ ദണ്ഡിയിൽ ഗാന്ധിഅനുസ്മരണ പരിപാടിയിൽ ശ്രീ

ദണ്ഡി ഗ്രാമത്തിലെ ദേശീയ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു

ലോക്സഭ നടപടികളൂട്ട്ട് സ്തുഗമമായ നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഹ്റക്രണം അഭ്യർത്ഥിച്ചാണ് സ്പീക്കർ സർവ്വകക്ഷിയോഗം വിളിച്ചുത് യോഗത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടീ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗേ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സുധീപ് ബന്ധോപദ്ധ്യായ ബി ജെ പി നേതാവ് ഭർത്തൃഹരി മഹ്താബ് ആർ

നേതാവ് കാർകൃപാൽ യാദവ് സി

എം നേതാവ് പി

കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിനിധികരിച്ച് പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമാറും സഹമന്ത്രിമാരായ വിജയ് ഗോയലും അർജ്ജുൻ റാം മേഘ്വാളും പങ്കെടുത്തു

സി

വെള്ളിയാഴ്ച ബജറ്റ് അവതരിപ്പിക്കും

ന്യൂഡൽഹിയിൽ റെയിൽവേയുടെ ഭാവി എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര ഊർജ്ജസമിതി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ചടങ്ങിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് പദ്ധതി പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ തന്നെ വേഗത്തിൽ വൈദ്യുതീകരണം നടത്തിയ റെയിൽവേ ശൃംഖലകളിലൊന്നാകും ഇന്ത്യയിലേതെന്നും മന്ത്രി പറഞ്ഞു

ബാങ്കിന്റെ രണ്ടാം വാർഷികാഘോഷ വേളയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

നൽകുന്ന ഗുണമേന്മയുള്ള സേവനങ്ങൾ ജനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും ശ്രീ

ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഒരു വിപ്തവകരമായ ബാങ്കിംഗ് സംവിധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഐ

യുടെ ഒരു ശാഖ എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് ചടങ്ങിൽ സംസാരിച്ച വാർത്താ വിനിമയകാര്യ മന്ത്രി മനോജ് സിൻഹ പറഞ്ഞു ബാങ്കിന്റെ സുഗമമായ പ്രവർത്തനത്തിനായി രണ്ടരലക്ഷത്തിലധികം പോസ്റ്റുമാൻമാർ ശ്രമിക്കുന്നു

ശൃംഖല പാദമുറപ്പിക്കുകയാണ്

നിലവിൽ വന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വരാനിരിക്കുന്ന ലോക്സ്ട് ്തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണിത്

ഇന്നലെ സംസ്ഥാനത്ത് എത്തിയ സംഘം കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയും നക്സൽബാധിത പ്രദേശങ്ങളിലെ സാഹചര്യവും സംഘം വിലയിരുത്തി ജാർഖണ്ഡ് ഇൻസ്പെക്ടർ ജനറൽ ആശിഷ് ബത്ര സംസ്ഥാന ചീഫ് ഇലക്ഷൻ ഓഫിസർ ഖ്യാങ്റ്റെ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു

ചരക്കു സേവന നികുതി പ്രാബലൃത്തിൽ വന്ന ശേഷമുളള രണ്ടാമത്തെ ബജറ്റാണ് ഇത്

ബി ഐ

പ്രത്യേക സി ബി ഐ കോടതി വിധിയിൽ സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ സംതൃപ്തി രേഖപ്പെടുത്തി

ബി ഐ

സി സി ഐ

ശശി തരൂർ നടത്തിയ പരാമർശത്തിൽ ബി ജെ

ശശി തരൂർ ടിറ്ററിൽ യോഗി ആദിത്യനാഥും മറ്റൊരാളും കുംഭമേളയിൽ സ്നാനം നടത്തുന്ന ചിത്രത്തോടൊപ്പം നൽകിയ ട്വീറ്റ് ആണ് വിവാദമായത് ശശി തരൂരിന്റെ പരാമർശം മതപരമായ അപകീർത്തിപ്പെടുത്തലാണെന്ന് ബി ജെ

നേതാവും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി പറഞ്ഞു വിഷയത്തിൽ രാഹുൽഗാന്ധിയുടെ മൌനം അദ്ദേഹത്തിന്റെ സമ്മതത്തോടെയാണ് തരൂർ ഈ പരാമർശം നടത്തിയത് എന്നതിന്റെ സൂചനയാണെന്നും ശ്രീമതി ഇറാനി പറഞ്ഞു രാജ്യസഭാ എം

യും ബി ജെ

സുബ്രഹ്മണ്യൻ സ്വാമിയും തരൂരിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചു